സമൂഹത്തിലെ ഏറ്റവും അവസാനത്തെ വൃക്തിയെയും വികസനത്തിന്റെ മുൻനിരയിൽ എത്തിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ജെ

കേരളം മഴക്കെടുതികളിൽ നിന്ന് കരകയറുന്നു ഓണാവധിയ്ക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും

ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്കിന്ന് നാല് മെഡലുകൾ മെഡൽ പട്ടികയിൽ ഇന്ത്യ ഒൻപതാം സ്ഥാനത്ത്

വരാണാസി ജില്ലയിലെ ബി ജെ പി മണ്ഡൽ മുഖ്യരുമായും പാർട്ടി പ്രവർത്തകരുമായും നരേന്ദ്രമോദി ആപ്പിലൂടെ ന്യൂഡൽഹിയിൽ നിന്നും വീഡിയോ കോൺഫെറൻസിംഗ് വഴി ആശയ വിനിമയം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി

ഉഡാൻ പദ്ധതിയിലൂടെ സാധാരണ ജനങ്ങൾക്കും ഇപ്പോൾ വിമാന സഞ്ചാരം നടത്താനാകും ജനാധിപത്യ മൂല്യങ്ങളും ജനങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനുവേണ്ടി കഠിനാധ്വാനം നടത്തുന്ന വരാണാസിയിലെ ബി

മോദി അനുമോദിച്ചു

ഈ വേളയിൽ കാശിയിലെ ജനങ്ങൾ ആ നഗരത്തിന്റെ ആത്മീയ സംസ്ക്കാരവും ഇന്ത്യൻ മൂല്യങ്ങളുടെ സംസ്ക്കാരവും സമ്മേളന പ്രതിനിധികളെ ബോധ്യപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ജെ

ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ ഒരു ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ബി ജെ

സ്വച്ഛ് ഭാരത് പദ്ധതി ലക്ഷ്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു

അന്തരിച്ച മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്ക് യോഗം ആദരാജ്ഞലിയർപ്പിച്ചു

ദ്ധിദിന സന്ദർശനത്തിന്റെ ഭാഗമായി എത്തിയ അദ്ദേഹം ഇന്ന് ചെങ്ങന്നൂർ ആലപ്പുഴ മേഖലകളിൽ ദുരിത ബാധിതരായ ജനങ്ങളുമായി ആശയവിനിമയം നടത്തി

രക്ഷാ പ്രവർത്തനങ്ങളിൽ സജീവ പങ്ക് വഹിച്ച മത്സൃത്തൊഴിലാളികളെ ആലപ്പുഴയിൽ നടന്ന ചടങ്ങിൽ രാഹുൽ ്ഗൃദ്ധി അഭിനന്ദിച്ചു

നാളെ വയനാട് കോഴിക്കോട്ട് ്ജില്ലക്ൾ സന്ദർശിച്ച ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ ഡിൽഹിക്ക് മടങ്ങും

ഉത്തര യമുനാ നദീതട പ്രദേശങ്ങളിലുള്ള സംസ്ഥാനങ്ങളുമായാണ് കരാർ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഹരിയാന ഡൽഹി എന്നീ സംസ്ഥാന കേന്ദ്ര ഭരണ മേഖലകളാണ് കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്

കേസുകൾ തെളിയിക്കപ്പെടുന്നതിന് മുൻപെ തന്നെ ഇവരെ അയോഗൃരാക്കണമെന്നതാണ് ഹർജിക്കാരുടെ ആവശൃം വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റ് എന്നിവരുടെ വാദങ്ങൾ പൂർണ്ണമായും കേട്ടശേഷമാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് കേസ് വിധി പറയുന്നതിനായി മാറ്റിവെച്ചത് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ കെ

വേണുഗോപാൽ രാഷ്ട്രീയ വൃവസ്ഥിതി ശുദ്ധീകരിക്കുന്നതിനുള്ള പരമോന്നത് കോട്ടതിയുടെ നീക്കങ്ങളെ അഭിനന്ദിച്ചെങ്കിലും ജുഡീഷ്യറിയ്ക്ക് ക്ടിയ്മനിർമ്മാണ മേഖലയിൽ ഇടപെടാൻ കഴിയില്ലെന്ന് അറിയിച്ചു

താജ്മഹൽ സംരക്ഷണ വിഷയം പരിഗണിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കണക്കിലെടുക്കണമെന്ന് ജസ്റ്റിസ് മദൻ ബീ ലോക്കൂർ അധ്യക്ഷനായ ബഞ്ച് അധികാരികളോട് നിർദ്ദേശിച്ചു കേന്ദ്രം ആവശ്യപ്പെട്ടത് അനുസരിച്ചുള്ള പ്രതികരണം ഒരു മാസത്തിനകം നൽകാമെന്ന് ഉത്തർപ്രദേശ് ഗവൺമെന്റ് കോടതിയെ അറിയിച്ചു

ഷോർട്ട് സർക്ക്യൂട്ടാകാം തീപിടിത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല മറ്റൊരു സംഭവത്തിൽ പുൽവാമാ ജില്ലയിലെ ലുർഗാം ട്രാൻ മേഖലയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ വെടിവെയ്പിൽ ഒരു ഭീകരനും തദ്ദേശവാസിയ്ക്കും പരിക്കേറ്റു

സംസ്ഥാനത്തെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ അധ്യയനം മുടങ്ങാതിരിക്കാൻ ക്യാമ്പുകൾ മറ്റ് കേന്ദ്രങ്ങളിലേയ്ക്ക് മാറ്റുന്നതിനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്

വെള്ളപ്പൊക്കത്തെത്തടുർന്ന് സർവീസ് നിർത്തിവെച്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നാളെ സർവ്വീസ് പുനരാരംഭിക്കും

പ്രളയബാധിത മേഖല്ല്ക്ക്ളിൽ കുമിഞ്ഞുകൂടിയ മാലിനൃങ്ങൾ പുഴയിലേയ്ക്കും ് ജല്ഉശയങ്ങളിലേയ്ക്കും തള്ളുന്നവർക്കെതിരെ നടപ്പട്ടു സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് പോലീസിന് നിർദ്ദേശം നൽകി

പ്രസിഡന്റായി എം

സ്റ്റാലിൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്ന് ചേർന്ന പാർട്ടി ജനറൽ കൌൺസിൽ യോഗമാണ് സ്റ്റാലിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് പാർട്ടി ജനറൽ സെക്രട്ടറി കെ

ചെന്നൈ പാർട്ടി ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ എം കരുണാനിധി മുൻ പ്രധാനമന്ത്രി അടൽബിഹാരി വാജ്പേയ് മുൻ ലോക്സഭാ സ്പീക്കർ സോമനാഥ് ചാറ്റർജി എന്നിവരുടെ നിര്യാണത്തിലും തൂത്തുക്കുടി കലാപത്തിലും കേരളത്തിലെ മഴക്കെടുതികളിൽ മരിച്ചവരുടെ നിര്യാണത്തിലും അനുശോചനം രേഖപ്പെടുത്തി

ജവഹർലാൽ നെഹ്റു തുറമുഖ ടെസ്റ്റ് ഷിപ്പിംഗ് മന്ത്രാലയം റെയിൽവേ മന്ത്രാലയം മഹാരാഷ്ട്രാ മധ്യപ്രദേശ് ഗവൺമെന്റുകൾ എന്നിവ ചേർന്നാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്

യാത്രാദൂരം കുറയ്ക്കുക മാത്രമല്ല റെയിൽവേ ലൈൻ കടന്നുപോകുന്ന ആദിവാസി മേഖലകളുടെ വികസനം കൂടിയാണ് പദ്ധതി ലക്ഷ്യമിടുന്ന്കൃതന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിഥിൻ ഗഡ്കൃതിന്യൂഡൽഹിയിൽ പറഞ്ഞു റെയിവേ മന്ത്രി പിയൂഷ് ഗോയൽ ് മപ്പാരാഷ്ട്ര മധ്യപ്രദേശ് മുഖ്യമന്ത്രിമാർ എന്നിവരും ച്ടട്ങ്ങിൽ സന്നിഹിതരായിരുന്നു

മലേഷ്യയാണ് സെമിയിൽ ഇന്ത്യയുടെ എതിരാളി

ഏഷ്യാഡിലെ ബാഡ്മിന്റൺ മത്സരത്തിൽ വെള്ളി നേട്ടം കരസ്ഥമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന ചരിത്രനേട്ടം പി

സിന്ധുവിനെ രാഷ്ട്രപതി റാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു സിന്ധുവിന്റെ വിജയം ചരിത്രപരമെന്നാണ്ട് പ്രശ്രീ

മോദി ട്വീറ്റ് ചെയ്തത്

ആർ ഒ എന്ന് കേന്ദ്രമന്ത്രി ഡോ

ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യനെ വഹിച്ചു കൊണ്ടുള്ള ഇന്ത്യയുടെ ആദ്യ ശൂന്യാകാശ യാത്രയായ ഗഗൻയാൻ സംബന്ധിച്ച് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു